രാജൃത്ത് പലയിടത്തുമുണ്ടായ പ്രളയത്തിനും പ്രകൃതിക്ഷോ ഭത്തിനും കാരണം ആസൂത്രണമില്ലാ്ത്ത് ന്ഗരവൽക്കരണ മാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിൽ ഫോറൻസിക് പരിശോധന അമേരിക്കയിൽ നടത്തും ക്രൈംബ്രാഞ്ച് അനേഷ്ണസംഘം വിപുലീകരിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ ഇന്ന് വ്യോമസേനാദിനം പ്രധാനമന്ത്രിയും ആഭ്യന്തരമ ന്ത്രിയും വ്യോമസേനയുടെ ധൈര്യത്തെയും വീര്യത്തെയും അഭിനന്ദിച്ചു

ലോക്വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മേരികോം ഇന്ന് ആദ്യമത്സരത്തിന് ഇറങ്ങും ഇന്ത്യക്കായി നിർമിച്ച റഫേൽ യുദ്ധ വിമാനങ്ങളിൽ ആദ്യ ത്തേത് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ്സിങ് ഇന്ന് ഫ്രാൻസിലെ മെറിനാക്കിൽ ഏറ്റുവാങ്ങും

ഇതിന് മുന്നോടിയായി വ്യോമ താവളത്തിൽ ഒരുക്കുന്ന ആയുധ പൂജയിലും രാജ്നാഥ്സിംഗ് പങ്കുചേരും

വിമാനത്തിൽ പരീ ക്ഷണ പറക്കൽ നടത്തുന്ന രാജ്നാഥ് സിങ് പിന്നീട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായും പ്രതിരോധമന്ത്രിയു മായും സുരക്ഷാ സംബന്ധമായ ചർച്ചകൾ നടത്തും രാജ്യത്ത് പലയിടങ്ങളിലുമുണ്ടായ പ്രളയത്തിനും പ്രകൃതി ക്ഷോഭങ്ങൾക്കും കാരണം ആസൂത്രണമില്ലാത്ത നഗരവൽക്ക രണമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രഴിക്കുന്നതിന് പകരം വൃക്തമായ ദിശാബോധത്തോടെ ന്ന്തരപ്പൽക്കരണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് പുതുതായി ആരംഭിക്കുന്ന സ്മാർട്ട് സിറ്റി കൾ പൂർണമായും ആസൂത്രണത്തോടെ തയ്യാറാക്കിയവയാ ണെന്നും പരിസ്ഥിതിക്ക് ഒരുതരത്തിലും അവ ഭീഷണിയാവി ല്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു പിടിഐ മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ് കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട്ട് കൂടത്തായി കൊലപാതകപരമ്പരയിൽ ഫോറൻസിക് പ്പരിശോധന അമേരിക്കയിൽ നടത്തും

പരാ തിക്കാരൻ റോജോ തോമസിനെ അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചുവരുത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് കൂടത്തായി കൊലപാതകങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ തിരു വനന്തപുരത്ത് പറഞ്ഞു മൃതദേഹങ്ങളിലെ ഡയനൈഡ് ഉപയോ ഗത്തിന്റെ തെളിവ് കണ്ടെത്തുക വെല്ലുവിളിയാണ്

ഷാജുവിന്റെ ആദ്യഭാര്യ സിലിയുടെ ബന്ധുക്കൾ ഇന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ മൊഴി നല്കാനെത്തി സിലിയുടേയും മകളുടേയും മരണവും അന്വേഷണ പരിധിയിലുണ്ട് ആൾകൂട്ട കൊലപാതകങ്ങൾ പാശ്ചാത്യ സമ്പ്രദായമാണെന്നും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ അത്തര് നടപ്പടികൾ ഉണ്ടാ കരുതെന്നും ആർഎസ്എസ് മേധാവി മ്മോഹൻഭുഗവത് ആവശ്യ പ്പെട്ടു നാഗ്പൂരിലെ രഷ്മിബാഗ് മൈതാന്ത്ത് വിജയദശമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആൾകൂട്ട കൊലപാ തകം മറ്റൊരു മതവിഭാഗത്തിന്റെ ആച്ചാർവുമായി ബന്ധപ്പെട്ടതാ ണെന്നും ഇന്ത്യൻ ചരിത്രത്തിൽ അതിന് പ്രസക്തിയില്ലെന്നും ഭഗ വത് വിശദീകരിച്ചു

ജമ്മുവും കശ്മീരും കേന്ദ്രഭരണ പ്രദേശങ്ങളായി എക്കാലവും നിലനിൽക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സുരക്ഷാസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാനപദവി പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു

എസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില നിർഭയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ദേശീയ പൌരത്വ രജിസ്റ്റർ ദേശസുരക്ഷയ്ക്ക് മാത്രമല്ല മികച്ച ഭരണനിർവ്വഹണത്തിനും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്യത്തെ സംഘർഷകാലത്തും പ്രകൃതിക്ഷോഭ കാലത്തും സംരക്ഷിക്കുന്ന ഇന്ത്യൻ വ്യോമസേ നയുടെ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

പാക്കിസ്ഥാനിലെ ബാലാക്കോട്ട് മിന്നലാക്രമണത്തിൽ പങ്കെ ടുത്ത രണ്ട് വ്യോമസ്നോ സ്കാഡ്രനുകൾക്ക് ഹിന്തോൺ താവ ളത്തിൽ കീർത്തി മുദ്ര സമ്മാനിച്ചു

നിയന്തിത സ് ഫോടനങ്ങളിലൂടെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിലും ഖനനത്തിലും വിദഗ്ധനായ സർവ്വത്തെ വ്യാഴാഴ്ചയാണ് സംസ്ഥാനത്തെത്തുന്നത് നാലു ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി അഞ്ചു കെട്ടിടങ്ങളാണ് പൊളിക്കാനുളളത് കിഫ്ബിക്ക് താൻ എതിരല്ലെന്നും കിഫ്ബിയിൽ നടപടികൾ പാലിക്കാത്തിനെയാണ് എതിർത്തതെന്നും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മഞ്ചേശ്വരത്ത് പറഞ്ഞു മസാലബോണ്ട് കാര്യത്തിൽ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടിയ പലിശയ്ക്ക് പണം കടം എടുക്കുന്നത് കേരളത്തിന് ബാധ്യതയാവുമെന്നും പവർഗ്രിഡുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഗവർണറെ സമീ പിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു

സംസ്ഥാനതല സമാപന സ്മ്മേളനം തിരുവ നന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്തെ വനശ്രീ ഓഡിറ്റോറിയ ത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖ്യാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാജു അധ്യക്ഷനായിരിക്കും ജമ്മു കശ്മീരിൽ രണ്ടുമാസത്തിലേറെയായി വിനോദസഞ്ചാ രികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം അവസാനിക്കുന്നു

ജമ്മു കശ്മീരിലെ അവന്തിപോരയിൽ ഭീകരും സുരക്ഷാസേ നയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു പ്രദേ ശത്ത് ഭീകർവാദികളുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് വലിയതോതിൽ ആയു ധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു

സരസ്വതീ സാന്നിധ്യം കൽപിക്കുന്ന ക്ഷേത്രങ്ങളിലും മറ്റു സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ പുരോഗമിക്കു ന്നു ആദ്യാക്ഷരങ്ങൾ നാവിലെഴുതിയും അരിയിലും മണലിലും ഹരിശ്രീ കുറിച്ചും ഗുരുനാഥൻമാർ തലമുറകളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു

തിരൂർ തുഞ്ചൻ പറമ്പിലെ കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശ്ശാൻമാർക്ക് പുറമെ സാഹിത്യകാരന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു തുഞ്ചൻ സ്മാരക ഓ ഡിറ്റോറിയത്തിൽ കവികളുടെ വിദ്യാരംഭവും നടന്നു മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ജന്മഗൃഹമ്മായ തിരുനാവായ കുറുമ്പത്തൂരില്ലം പെരിന്തൽമണ്ണയിലെ പ്രൂന്താനം ഇല്ലം വള്ള ത്തോളിന്റെ ജന്മഗൃഹം എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേ ത്രം അടക്കം നിരവധി കേന്ദ്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നട ന്നു കോട്ടയം പനച്ചിക്കാട് ദക്ഷിണമൂകാംബിക ക്ഷേത്രം എറ ണാകുളം ജില്ലയിലെ വടക്കൻ ്പരവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ചോറ്റാനിക്കര ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുലർച്ചെ തന്നെ വിദ്യാരംഭ ചട ങ്ങുകൾ ആരംഭിച്ചു തൃശൂർ ചേർപ്പ് തിരുവുള്ളക്കാവിലും വിദ്യാരംഭത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു പാലക്കാട് ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ് മാരകത്തിലും ചിറ്റൂർ തുഞ്ചൻ മഠത്തിലും വിദ്യാരംഭ ചടങ്ങു കൾ പുരോഗമിക്കുന്നു കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങ ളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ട ത് ആയിരങ്ങൾ വിദ്യാരംഭം നടത്തി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെ ങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ദസറ ആശംകൾ നേർന്നു സത്യത്തിന്റെയും നന്മയുടെയും വിജ യമാണ് ദസറ ആഘോഷങ്ങളുടെ സന്ദേശമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു സത്യസ ന്ധമായ ജീവിതത്തിനും മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ഇത്തരം ആഘോഷങ്ങൾ പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറ ഞ്ഞു തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ദസറ ആഘോഷമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് വിജയദശമി സന്ദേശത്തിൽ പ്രധാനമന്ത്രി ആവശൃപ്പെട്ടു രാമ രാവണ യുദ്ധത്തിൽ സൃമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തിരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ദസറ പ്രമാണിച്ച് ഇന്ന് ഓഹരിവിപണിക്ക് അവധി

തുടർച്ചയായ ഏഴാം ദിവസവും ഓഹരിവീപണി നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻ പി വി സിന്ധു ഇന്ന് കേരള ത്തിലെത്തും നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ഗവൺമെന്റ് സിന്ധുവിനെ ആദരിക്കും

ഒഡീഷയിൽ അഖിലേന്ത്യ അന്തർസർവകലാശാല വടംവലി മത്സരത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചാംപ്യൻമാരായി വനിതാവിഭാഗത്തിൽ കാലിക്കറ്റ് ഒന്നാംസ്ഥാനിവും കണ്ണൂർ സർവകലാശാല രണ്ടാംസ്ഥാനവും നേടി

തൃശൂർ പാവറട്ടി രഞ്ജിത്ത് കസ്റ്റഡി മരണക്കേസിൽ മൂന്ന് എക്സൈസ് ഉദ്യോഗ്രസ്ഥരെ അറസ്റ്റ് ചെയ്തു പ്രിവന്റീവ് ഓഫീ സർമാരായ അബ്ദുൾജബ്ബാർ അനൂപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ നിതിൻ മാധവ് എന്നിവരെയാണ് പൊലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ജില്ലാ ജയിലിൽ നിന്ന് നിർമ്മിക്കുന്ന കിണ്ണത്തപ്പത്തിന്റെ വിപണനോദ്ഘാടനം ജയിൽ ഡി ജി

ജില്ലാ ജയിലിൽ നിർമ്മിക്കുന്ന പൂച്ചചട്ടികളുടെ വിപണനോദ്ഘാ ടനവും ഡി ജി